വിക്രം ലാൻഡ റിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ദിശാ ക്രമീകരണം വിജയകരം

ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും

ള അ ശ്ര ഇന്ത്യ റഷ്യ ഉച്ചകോടിയിലും ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിലും പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയി ലെത്തി

തുടർന്ന് ഇരു രാജ്യങ്ങളും ഒപ്പു വെക്കുന്ന കരാറുകൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും നരേന്ദ്രമോദിയും സംയുക്ത വാർത്താ സമ്മേ ളനത്തിൽ വിശദീകരിക്കും

ശനിയാഴ്ച പുലർച്ചെ ഒന്നരയ്ക്കും രണ്ടരയ്ക്കും ഇടയിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലായിരിക്കും വിക്രം സോഫ്റ്റ് ലാൻഡിങ് നടത്തുക തുടർന്ന് പ്രഗ്യാൻ എന്ന റോവർ ചന്ദ്രോപരിതലത്തിലെ ഗവേഷണ നിരീക്ഷണങ്ങൾ ആരംഭിക്കും വിക്രം ലാൻഡിങ് നേരിൽ കാണാനും ചരിത്ര നിമിഷം ആഘോ ഷിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗുളൂരുവിൽ ഇസ്രോ കേന്ദ്രത്തിലെത്തും ലാൻഡറിന്റെ പ്രവർത്തനങ്ങൾ തികച്ചും തൃപ്തികരമാണെന്ന് ഐ എസ് ആർ ഒ കേന്ദ്രങ്ങൾ അറിയിച്ചു

വായ്പകളുടെ തിരിച്ചടവു കാലാവധി പരമാവധി അഞ്ചു വർഷം വരെയാക്കി പുനക്രമീകരിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി തീരുമാനിച്ചു കാർഷിക വായ്പകൾക്കും ഭവന വിദ്യാഭ്യാസ വായ്പകൾ ചെറു കിട ഇടത്തര വൃവസായ വായ്പകൾ എന്നിവയ്ക്കാണ് മൊറട്ടോ റിയം

ദുരിതബാധിത വില്ലേജുകളിലെ വായ്പക്കാർക്ക് ജാമ്യം ഇല്ലാതെ അധികവായ്പ നൽകാനും മന്ത്രി വി

വായ്പ പുനക്രമീകരിക്കാനും മൊറട്ടോറിയം ബാധകമാക്കാനും ഇടപാടു കാർ ബന്ധപ്പെട്ട ബാങ്കുകളിൽ അപേക്ഷ നൽകേണ്ടതാണ്

ഇന്നലെ വരെ ട്രഷറികൾക്ക് കൈമാറിയ തുകയാണിത്

കവളപ്പാറ ഉൾപ്പടെ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും കനത്ത നാ ശനഷ്ടങ്ങൾ നേരിട്ട മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ മ ന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു ഒരൊറ്റ രാത്രി കൊണ്ട് സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ടവർക്കൊപ്പം നിൽക്കേണ്ടതും അവരെ കൈപിടിച്ചുയർത്തേണ്ടതും സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെ ന്നും അതിന് വിയോജിപ്പുകൾ മറന്ന് എല്ലാ മലയാളികളുടെയും പിന്തുണ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു

മുപ്പത് ശതമാനത്തിന് മുകളിൽ നാശനഷ്ടം നേരിട്ടെന്ന് സർ വെ സംഘം ശിപാർശ ചെയ്ത വീടുകളിൽ തഹസിൽദാർ എക് സിക്യൂട്ടീവ് എഞ്ചിനിയർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധ ന നടത്തും മലപ്പുറം ജില്ലയിൽ പ്രളയത്തിൽ തകർന്ന വീട്ടുകളുടെ നാശനഷ്ടം ഇന്നു മുതൽ സർവ്വേ നടത്തി വിലയിരുത്തു വയനാട് ജില്ലയിലെ പ്രാക്തന ഗോത്ര വർഗ്ഗുക്കാരുടെ പ്രളയ ദുര ന്തത്തിന് പരിഹാരം കാണണമെന്ന് കേന്ദ്ര മന്ത്രി അർജുൻ മുണ്ടയ് ക്ക് രാഹുൽ ഗാന്ധി നിവേദനം നൽകി പ്രളയത്തിൽ ഗോത്ര വർഗക്കാരുടെ വീടും കൃഷിഭൂമിയും ജീവിതോപാധികളും നഷ്ടപ്പെ ട്ടിരിക്കുകയാണെന്ന് നിവേദനത്തിൽ അറിയിച്ചു പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസ് ടോമും എൻ

എ സ്ഥാനാർത്ഥി എൻ ഹരിയും ഇന്ന് നാ മനിർദേശ പത്രിക നൽകും ജോസ് ടോമിന്റെ ചിഹ്നം സംബന്ധി ച്ച അനിശ്ചിതത്വം പത്രികാസമർപ്പണത്തിനു മുമ്പ് പരിഹരിക്കുമെ ന്ന് യുഡിഎഫ് നേതൃത്വം അറിയിച്ചു കേരളാ കോൺഗ്രസ് എം വർക്കിങ്ങ് ചെയർമാൻ പി ജെ ജോസഫ് എഴുതി നൽകാൻ തയ്യാ റാകാത്തതിനാൽ ജോസ് ടോമിന് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്ന മായ രണ്ടില ലഭിക്കാത്ത സ്ഥിതിയാണ്

ഡി എഫ് സ്ഥാനാർ ത്ഥി മാണി സി കാപ്പന്റെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പുകൺ വെൻഷൻ ഇന്ന് വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ് ഘാടനം ചെയ്യും

ചിഹ്നം ആവശ്യപ്പെടുന്ന യാൾക്ക് പാർട്ടിയുടെ ഔദ്യോഗിക പദവിയുണ്ടോ എന്ന് നോക്കിയാവും തീരുമാനം ആ വ ശ്യമെങ്കിൽ തിരഞ്ഞെടുപ്പു ക മ്മീഷനെ സമീപിക്കാമെന്നും ടിക്കാറാം മീണ പറഞ്ഞു വ്യവസായ രംഗത്തെ പുരോഗതിക്ക് വാണിജ്യ മിഷൻ പുനസം ഘടിപ്പിക്കുന്ന നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുക യാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു കോഴിക്കോട് തിരു വണ്ണൂർ കോട്ടൺമില്ലിൽ നിന്നും വിദേശത്തേക്ക് കയറ്റി അയക്കു ന്ന ആദ്യ ലോഡ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി അടു ത്തവർഷം മുതൽ കൂടുതൽ കൂട്ടികൾക്ക് കൈത്തറി യൂണിഫോം നൽകാനും അംഗൺവാടി ആശാവർക്കർമാരുടെ യൂണിഫോമുക ൾ കൈത്തറിയാക്കാനും ഗവൺമെന്റ് ആലോചിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു മലബാർ സ്പിന്നിംഗ് ആന്റ് വിവീംഗ് മില്ലിൽ നി ന്നും ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിലേക്കാണ് നൂൽ കയറ്റി അയക്കുന്നത് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ കേരളത്തിലെ പൊതുമേഖ ലാ സ്ഥാപനങ്ങളോട് ചേർന്ന് സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപി ക്കുമെന്ന് കോഴിക്കോട് കൊടുവള്ളി സർവീസ് സഹകരണ ബാങ്ക് ആസ്ഥാനമന്ദിരം ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി അറിയിച്ചു

ഭാ സ്കരൻ അറിയിച്ചു

തിരുവനന്തപുരത്ത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എ ടീമുകളുടെ നാലാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ആദ്യ മൂന്ന് കളിയും ജയിച്ച് പര മ്പര സ്വന്തമാക്കിയ ഇന്ത്യ തുടർ മത്സരങ്ങളും ക്കെയിലൊതുക്കാ നാണ് ക്രീസിലിറങ്ങുന്നത് രാവിലെ ഒൻപതിനാണ് മത്സരം ശ്രേയസ്സ് അയ്യരാണ് നാലാം ഏകദിനത്തിൽ ടീം ഇന്ത്യയെ ഇന്ന് നയിക്കുന്നത് ശിഖർധവാനും സംഞ്ജു സാംസണും ടീമിലുണ്ട് ഭോപ്പാലിൽ ദേശീയ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ സാജൻ പ്രകാശ് ഇന്നലെ രണ്ടാം സ്വർണ്ണം നേടി

ഇന്നലെ ഡൽഹിയിൽ കാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളിനാ ണ് കേരളം മണിപ്പൂരിനോട് പരാജയപ്പെട്ടത് കട്ടക്കിൽ ദേശീയ സബ്ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷി പ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളം പുതുച്ചേരിയെ തോൽപ്പിച്ചു

എഫിലെ സുമ ബാലകൃഷ്ണനും എൽ ഡി

പ്രാഥമികാരോഗൃ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാരെ കുടുംബ ഡോക്ടർമാരാക്കി മാറ്റുമ്പോൾ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റം സാധ്യമാകുമെന്ന് മന്ത്രി കെ

ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാക്കായി ആരോഗ്യ പദ്ധതി നടപ്പാ ക്കുമെന്നും മന്ത്രി അറിയിച്ചു ദേശീയ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ നേടിയ എറണാകുളം ജില്ലയിലെ ഡോക്ടർമാരെ ആദരിക്കുന്ന ചടങ്ങ് കീച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പേരാമ്പ്ര ്കോളജിൽ പതാക തലതിരിഞ്ഞു പോയതിന്റെ പേരിൽ എം

എഫ് പ്രവർത്തകരെ വേട്ടയാടുന്നത് ആസൂത്രിത അജ ണ്ടയുടെ ഭാഗമാണെന്ന് മുസ്തിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

കൊടിയിൽ എം

എഫ് എ ന്നെഴുതാൻ വിട്ടുപോയതാണ് വിദ്യാർത്ഥികൾക്ക് സംഭവിച്ച പിഴ വ് സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ ഈ സാഹചര്യത്തിലെങ്കിലും വി ദ്യാർത്ഥികൾക്കെതിരായ നടപടികൾ പിൻവലിക്കണമെന്ന് മജീദ് ആവശ്യപ്പെട്ടു അമൃത് പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടുകൾ ഉന്നയിച്ച യു ഡി എ ഫ് കോർപ്പറേഷൻ കൌൺസിലർമാർക്കെതിരെ കൌൺസിൽ ഹാ ളിൽ ഉണ്ടായ ആക്രമത്തെ എം കെരാഘവൻ എം

പ്രതിപക്ഷ ഉപനേതാവ് സി അബ്ദുറഹ്മാൻ ഉൾപ്പെടെ ചിലർക്ക് പരുക്കേറ്റ സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു

അവ സാന സംഘത്തെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമാനത്താ വളത്തിൽ സ്വീകരിച്ചു തർക്കങ്ങൾ പരിഹരിച്ച് മഹല്ലുകളിൽ സൌഹൃദ അന്തരീക്ഷം സൃ ഷ്ടിക്കണമെന്നും ഇത്തരം ശ്രമങ്ങൾക്ക് മതപണ്ഡിതൻമാരും നേ തൃത്വവും മുൻഗണന നൽകണമെന്നും സംസ്ഥാന വഖ്ഫ് ബോർ ഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദലി ശിഹാബ് തങ്ങൾ നിർദേശിച്ചു കോഴിക്കേട് സംസ്ഥാന തല വഖ്ഫ് അദാലത്ത് ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ഡിവിഷന് പുതുതായിലഭിച്ച ത്രീ ഫേസ് മെമു ട്രെയിൻ കൊല്പം എറണാകുളം സർവ്വീസ് ആരംഭിച്ചു

കൊച്ചി ജല മെട്രോയ്ക്ക് ആവശ്യമായ ബോട്ടുകൾ നിർമിക്കുന്ന കരാർ കൊച്ചി കപ്പൽശാലയ്ക്ക് ലഭിച്ചു